ദേശീയ പുനരർപ്പണ ദിന്മായി ആചരിക്കുന്നു ശബരിമല മണ്ഡല്ക്ാല മുന്നൊരുക്കങ്ങൾ ന് ചർച്ചചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ യോഗം തിരുവന്തപുരത്ത്

മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കേസിൽ ഹർജി സ്വമേധയാ പിൻവലിക്കില്ലെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഡിസംബർ മൂന്നിന് ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും

വെസ്റ്റിൻഡീസിനെതിരായ അഞ്ചാം ഏകദിനം നാളെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ

ഐകൃത്തിന്റെ പ്രതീകമായ ഏകതാ മതിലും പ്രധാമന്ത്രി അനാച്ചാദനം ചെയ്തു രാജ്യത്തെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് ധീരതയുടെ പ്രതീകമായി പട്ടേൽ പ്രതിമ ലോകത്തിനു മുന്നിൽ ഉയർന്നു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗുജറാത്ത് ഗവർണർ ഒ

കോഹ്ലി മുഖ്യമന്ത്രി വിജയ് രുപാനി ബി ജെ

ദേശീയ അധ്യക്ഷൻ അമിത് ഷാ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു

രാഷ്ട്രം ഇന്ന് ഏകതാദിവസ് ആചരിക്കുന്നു

ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും പിന്നീട് ആഭ്യന്തര മന്ത്രിയുമായി പല നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്നിരുന്ന ഇന്ത്യയെ ഒരുമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി

ട്ടടട സർദാർ ഏകതാ ദിനം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ്ജന്മദിനം ദേശീയ ഏകതാ ദിനമായി ആചരിക്കുന്നതിനോടനുബിസ്പിച്ചു മലപ്പുറം നെഹ്റു യുവ കേന്ദ്രയും മലപ്പുറം തുപ്പൺമെന്റ് കോളജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു

ന്യൂഡൽഹിയിൽ ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന ശക്തിസ്ഥലിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഉൾപ്പടെയുള്ള നേതാക്കൾ ആദരാഞ്ജലി അർപ്പിച്ചു ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെ കുറിച്ച് ലിഖിത വിജയൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ പി നാലാം ബറ്റാലിയൻ പരിശീലനം പൂർത്തിയാക്കിയ പൊലീസ് ക്രേഡറ്റുമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ശനിയാഴ്ച നടക്കും രാപ്പിലെ മാങ്ങാട്ട് പറമ്പിലെ പരേഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പ്രീണറായി വിജയൻ പരേഡിനെ അഭിവാദ്യം ചെയ്യും

പ്രളയത്തിൽ തകർന്ന പമ്പയിലെ നടപ്പന്തലും മറ്റ് അനുബന്ധ സൌകര്യങ്ങളും പുനർനിർമിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നതായി ദേവസ്വംമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യോഗത്തിൽ അറിയിച്ചു

കേടായ റോഡുകളുടെ പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേയ്ക്ക് ഉദാരമായി സംഭാവന ചെയ്ത എല്ലാ സംസ്ഥാനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായും ശ്രീ

ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഭരണഘടനാപരമായ ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു

ഇതു സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് സമിതി സുപ്രീം കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ട് നാളെ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും

ദർശനത്തോടൊപ്പം കെ എസ് ആർ ടി സി ബസ് ടിക്കറ്റും ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും വെബ്സൈറ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്

ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പോയി അയ്യപ്പഭക്തരെ വെല്ലുവിളിക്കുകയാണ്

എമ്മുകാരെ വിളിച്ചുകൂട്ടി നവോത്ഥാന നായകനാകാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റേതെന്നും രാധാകൃഷ്ണൻ കോട്ടയത്ത് ആരോപിച്ചു

ശശീന്ദ്രൻ ശബരിമല തീർത്ഥാടക്ടർക്ക് സ്വകാര്യ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരുടെ സഹായത്തോടെ വാഹ്നങ്ങൾ അനുവദിക്കുന്നകാര്യം ഇപ്പോൾ പരിഗണനയിലില്ലെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ

എസ്

സി എം

ഹർജിയുമായി മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ സുരേന്ദ്രൻ കോടതിയെ അറിയിച്ചു

എൽ

ബി അബ്ദുൾ റസാഖ് മരിച്ചതിനെ തുടർന്ന് ഹർജിയുമായി മുന്നോട്ടുപോകാൻ താത്പര്യമുണ്ടോ എന്ന് കെ സുരേന്ദ്രനോട് കോടതി ആരാഞ്ഞിരുന്നു